വയനാട് ഇടുക്കി ഒഴികെ ജില്ലകളിൽ താപനില ഉയർന്നേക്കും കോഴിക്കോട് പാല ക്കാട് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനിടയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ും ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ റിട്ട് ഹർജികൾ സുപ്രീംകോടതിയി ലേക്ക് മാറ്റണമെന്ന സംസ്ഥാനഗവൺമെന്റിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി മുത്തലാഖ് ഓർഡിനൻസ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയും കോടതി നിരാകരിച്ചു ും കോൺഗ്രസ് പ്രവർത്തകസമിതിയോഗം ഡൽഹിയിൽ ആരംഭിച്ചു

വയനാട് ഇടുക്കി ഒഴികെ ജില്ലക ളിൽ താപനില ഉയരാനിടയുണ്ടെന്നും അറിയിപ്പിൽ പറ യുന്നു കോഴിക്കോട് പാലക്കാട് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനിടയുണ്ടെന്നും ജാഗ്രതാനിർദ്ദേശത്തിൽ പറയുന്നു നാളെ വരെ ഉഷ്ണതരംഗത്തിനും സൂര്യാഘാത ത്തിനും സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പുലർത്ത ണമെന്നും ആരോഗ്യ വകുപ്പും ദുരന്ത നിവാരണ അതോ റിറ്റിയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു

വീട്ടു പറമ്പിൽ വെള്ളം കിട്ടാനുള്ള സൌകരൃമുണ്ടാക്കുന്നത് പക്ഷി മൃഗാദികൾക്ക് വലിയ ആശ്വാസമാവും വനത്തിലെ ജലക്ഷാമം കണക്കിലെടുത്ത് അവിടെ കുളങ്ങളും മറ്റും നിർമിച്ച് വെള്ളം ലഭൃമാക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും ചൂട് വർധിക്കു ന്നതിനനുസരിച്ച് വനൃഗങ്ങൾ നാട്ടിലിറങ്ങാനുള്ള സാധൃത തള്ളിക്കളയാനാകില്ലെന്നും ഫേസ് ബുക്കിൽ മുഖ്യമന്ത്രി വൃക്തമാക്കി

നിർജലീകരണം തട യാൻ കുടിവെള്ളം എപ്പോഴും ചെറിയ കുപ്പിയിൽ കരു തണമെന്നും രോഗികൾ മൂന്ന് മണിവരെ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദേശിച്ചിട്ടുണ്ട് കാപ്പിയും ചായയും പകൽ സമയത്ത് ഒഴിവാക്കി ശുദ്ധ ജലം കുടിക്കണം പരീക്ഷാ കാലമായതിനാൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്ത ണമെന്നും അതോറിറ്റി അറിയിച്ചു

ജീവനക്കാരുടെ ഷിഫ്റ്റ് സമയം ഇതിനനുസരിച്ച് പുനക്രമീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരിഗണിക്കുന്ന റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി ഹൈക്കോടതിയുടെ തീരുമാനത്തിൽ ഇടപെടാനാവി ല്ലെന്നും ഗവൺമെന്റിന് വേണമെങ്കിൽ ഹൈക്കോട തിയെ തന്നെ സമീപിക്കാമെന്നും കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ശബരിമല നിരീക്ഷണ സമിതിയെ നിയ്മിച്ച നടപടിയിലും ഇടപെടാനാവില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബെഞ്ച് വൃക്തമാക്കി ഇതോടെ ഹർജികൾ പിൻവലിക്കുന്ന തായി ഗവൺമെന്റ് കോട തിയെ അറിയിച്ചു മണ്ഡലകാലത്തെ നിരോധനാജ്ഞ അടക്കം നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്തും യുവതി പ്രവേശനത്തിനെതിരെയും മുപ്പത്തിരണ്ടിൽപ്പരം ഹരജികളാണ് ഹൈക്കോടതിയിൽ ഉള്ളത് ഇവ സു പ്രീഠകോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നത്

ഓർഡിൻസിൽ ഇടപെടാനാകില്ലെന്നും ബില്ല് നിയമമാ യാൽ വേണ്ടി വന്നാൽ പരിഗണിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു സമസ്ത കേരള ജം ഇയ്യത്തുൽ ഉലമയാണ് മുത്തലാഖ് ഓർഡി നൻസിനെതിരെ കോടതിയെ സമീപിച്ചത്

വിഷ യത്തിൽ ഇടപ്ടൊൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ രണ്ടംഗബെഞ്ച് വൃക്തമാക്കി ഉത്തർപ്രദേശ് മുൻ ഡി ജി പി വിക്രംസിംഗ് ആണ് ഈ ആവശ്യവുമായി സുപ്രീംകോടതിയെ സമീ പിച്ചത്

ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടി പ്രകടന പത്രികയ്ക്ക് അന്തിമരൂപം നൽകാനാണ് യോഗം പ്രധാനമായും ചേരുന്നത് പത്രിക നാളെ പുറത്തിറക്കി യേക്കും വിവിധ പാർട്ടികളുമായി തെരഞ്ഞെടുപ്പു സഖ്യവും യോഗത്തിന്റെ പരിഗണനയ്ക്കുവരും പി ചിദം ബരം ചെയർമാനായ സമിതി പ്രകടന പത്രിക തയ്യാ റാക്കിയിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി കളെ തീരുമാനിക്കാൻ പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമി തിയും ഇന്ന് യോഗം ചേരുന്നുണ്ട് അതിനിടെ യോഗത്തിനെത്തിയ പാർട്ടി അധ്യക്ഷൻ രാഹുൽഗാന്ധി വയനാട് മത്സരിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദൃത്തോട് പ്രതികരിക്കാൻ വിസ മ്മതിച്ചു

പി സി ചാക്കോയുടെ വിമർശനങ്ങളോട് പ്രതിക രിക്കാനില്ലെന്നും പാർട്ടിക്കുള്ളിൽ അനിശ്ചിതത്വം ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി രാഹുൽഗാന്ധി വയ നാ ട്ടിൽ മത്സ് രിക്കു മെന്ന് ശുഭപ്രതീക്ഷയുണ്ടെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു വൈകുന്നേര ത്തോടെ തീരുമാനം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം മാധ്യമ പ്രവർത്തകരെ അറിയിച്ചു

ബി ജെപിയേക്കാൾ കോൺഗ്രസിനെ എതിർക്കുന്നതും മാർകിസ്റ്റ് പാർട്ടിയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി

ഒഡീഷ യിലെ രണ്ട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മറ്റി പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം ഒഡീഷയിലെ ഒൻപത് നിയമസഭാ മണ്ഡ ലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചി ട്ടുണ്ട് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമു ണ്ടാക്കുന്ന കാര്യത്തിൽ തീരു മാനമെടുക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ യോഗം പാർട്ടി അധൃക്ഷൻ രാഹുൽഗാന്ധിയെ ചുമതലപ്പെടുത്തി രാവിലെ ചേർന്നയോഗത്തിൽ സഖ്യം സംബന്ധിച്ച വിവിധ വശങ്ങൾ ചർച്ച ചെയ്തതയായി പാർട്ടി കേന്ദ്രങ്ങൾ പറഞ്ഞു വൈകുന്നേരത്തോടെ തീരുമാന മുണ്ടാകുമെന്നും അവർ അറിയിച്ചു ഒന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പത്രിക സമർപ്പണം ഇന്ന് അവസാനിക്കും

ആന്ധ്ര പ്രദേശ് ഒഡീഷ സിക്കിം സംസ്ഥാനടനിയമസഭകളിലേക്കും ആദൃ ഘട്ടത്തിൽ ഇതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർ പട്ടികയിൽ ഇന്ന് കൂടി പേര് ചേർക്കാം

നാമനിർദേശ പത്രിക പിൻവലി ക്കുന്ന അടുത്തമാസം

ബാങ്ക് വായ്പകൾ തിരിച്ചയ്ക്കുന്നതിൽ ഭൂരിഭാഗം പേരും മനഃ പൂർവും വീഴ്ച വരുത്തുകയാണെന്ന് പണം വകമാറ്റി ചെലവഴിക്കുകയാണ് എ ഐ ബി ഇ എ ജനറൽ സെക്ര ട്ടറി വെങ്കടാചലം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ച കത്തിൽ പറഞ്ഞു ബാങ്ക് വായ്പ കുടിശ്ശിക ഇപ്പോഴും സിവിൽ കുറ്റമാണെന്നും അതിനാൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരി കഴിയു ന്നി ല്ലെന്നും ക്കാൻ അദ്ദേഹം പറഞ്ഞു

രാത്രി എട്ടിന് ജെയ്പൂരിലാണ് മത്സരം ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ച് ഭീകരാക്രമണ ത്തിൽ മരിച്ച കൊടുങ്ങല്ലൂർ സ്വദേശിനി അൻസി അലിബാവയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു പുലർച്ചെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം തിരുവള്ളൂരിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോ യി കൊടുങ്ങല്ലൂരിലെ കമ്മ്യൂണിറ്റിഹാളിൽ പൊതുദർശ നത്തിനുവെച്ചശേഷം മൃതദേഹം ഖബറടക്കി

വയനാട്ടിൽ കുരങ്ങുപനി ബാധിച്ച് ഒരാൾ മരിച്ച സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദേശം ശക്തമാക്കി

സംഘം മുദ്രാവാകൃം വിളിക്കുകയും ലഘു ലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു വയനാട്ടിൽ മാവോയിസ്റ്റ് സാന്നിധൃം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലാ അതിർത്തിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസിനെ കൂടാതെ തണ്ടർ ബോൾട്ടിനെയും നിയോഗിച്ചിട്ടുണ്ട് വയനാട്ടിൽ ജനവാസ് മേഖലയിലിറങ്ങിയ കടുവ വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി പുലർച്ചെയാണ് കടുവ കുടുങ്ങിയത് ഇരുളം ചീയമ്പത്ത് ഇന്നലെ കടു വയുടെ ആക്രമണത്തിൽ അഞ്ച് വനപാലകർക്ക് പരിക്കേറ്റിരുന്നു

കരുവാരക്കുരു കാക്കരാജൻ എന്നീ ഇനങ്ങളെയാണ് പുതുതായി കുണ്ടെത്തിയത്

സർവേ റിപ്പോർട്ട് ഉടൻ പ്രസിദ്ധപ്പെടുത്തും ഓഹരി വിപണിയിൽ കനത്ത നഷ്ടം

ട്രെയിൻ യാത്രക്കാർക്ക് ട്രെയിൻ പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുൻപ് ട്രെയിനിൽ കയറുന്ന സ്ഥലം മാറ്റുന്ന സംവിധാനം മെയ് മുതൽ നിലവിൽ വരും റിസർവേഷൻ കൌണ്ടർ വഴിയും ഓൺലൈനിലൂടെയും ഇത് മാറ്റാവുന്നതാണ് ആദ്യ റിസർവേഷൻ ചാർട്ട് തയ്യാ റാകുന്നതുവരെയാണ് ട്രെയിനിൽ കയറുന്ന സ്ഥലം മാറ്റാൻ സാധിക്കുക